നൽകണമെന്നും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ആഗോള ഐക്യും അനിവാര്യമെന്നും പ്രധാനമ്യന്തി നരേന്ദ്രമോദി

ന് ബീഹാറിൽ രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും

സ്ഥിരീകരിച്ചു

മുംബൈ ഇന്ത്യൻസിന് ജയം രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാഗ്ലൂരും സൺ റൈസേഴ്സ് ഹൈദരാബാദും നേർക്കുനേർ

ദേശീയ താൽപ്പര്യത്തിന് പ്രഥമ പരിഗണന നൽക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

ക്ർഷകരുടെയും തൊഴിലാളികളുടെയും ദരിദ്രിരുടെയും ഉന്നമനത്തിനായി നിരന്തരം പ്രവർത്തിക്കുന്നുള്ങ്ങ്ന്നും അവരെ സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും ശ്രീ മോദി വ്യക്തമാക്കി

മുൻനിര കൊറോണ യോദ്ധാക്കളെയും മഹാമാരിക്കെതിരായ പോരാട്ടത്തെയും അദ്ദേഹം പ്രശംസിച്ചു രാഷ്ട്രീയ ഏക്ത ദിവാസ് പരേഡിന് സാക്ഷ്യം വഹിച്ച പ്രധാനമന്ത്രി ഏകതാ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു

നവ ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ പട്ടേലിന്റെ പങ്ക് നിർണായകമായിരുന്നെന്നും ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു

മുസൂറിയിൽ പരിശീലനം നടത്തി വരുന്ന സിവിൽ സർവീസ് ട്രെയിനികളോട് വീഡിയോ കോൺഫറൻസിങ് മുഖേന സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

സ്വയം പര്യാപ്ത ഇന്ത്യ കൈവരിക്കുന്നതിന് പ്രാർദ്ദേശിക ഉത്പന്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളൂണ്മെന്നും ശ്രീ മോദി ആവശ്യപ്പെട്ടു

പുൽവാമ ഭീകരാക്രമണ്ണം നടന്ന സമയത്ത് പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിച്ച നിലപാടിനെ പിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഗുജറാത്തിലെ കെവാദിയയിൽ ഏകതാ ദിവസ് പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ്

എന്നാൽ ഇപ്പോൾ അയൽരാജ്യത്തിന്റെ പാർലമെന്റിൽ തന്നെ സത്യം പുറത്തു വന്നതോടെ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ആയിരക്കണക്കിന് ജീവനുകൾ രാജ്യത്തിനു നഷ്ടമായി ഭീകരവാദത്തിനെതിരെ ഒന്നിക്കാൻ ലോകരാജ്യങ്ങളോട് ശ്രീ

ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഒന്നിക്കണമെന്നും രാജ്യത്തെ ജനങ്ങളോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

കെവാദിയയിൽ ഏകതാ പ്രതിമക്കരികിൽ ജലവിമാനത്താവളവും കെവാദിയയെയും അഹമ്മദാബാദിലെ സബർമതി നദീമുഖത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സീപ്പെയിൻ സർവീസും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു

ഭോജ്പുരി ഗായകരും സിനിമാ താരങ്ങളുമുൾപ്പെടെ നിരവധി താര പ്രചാരകരെ അണിനിരത്തിയാണ് വിവിധ പാർട്ടികൾ പ്രചാരണം നടത്തുന്നത്

സിറയിലും ആർ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

ബിജെപിയും കോൺഗ്രസും ജെഡിയുവും രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്

കസ്തൂരിരംഗൻ

ഏകീകൃതവും എന്നാൽ അയ്വുള്ളതുമായ സമീപനമാണ് പുതിയ നയം പുലൂർത്തുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഐയുടേയും സംസ്ഥാന ഏജൻസികളുടേയും സഹായത്തോടെയാണ് ഈ റെക്കോർഡ് നേട്ടം കൈവരിക്കുന്നത്

ഇന്ന് എട്ട് പുതിയ ഹോട്ട്സ് പോട്ടുകളാണുള്ളത്

പൊതുഗതാഗതം സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾ വ്യവസായങ്ങൾ ആശുപത്രികൾ എന്നിവ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും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

രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരു സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുന്നു ടോസ് നേടിയ ഹൈദരാബാദ് ബോളിങ് തെരഞ്ഞെടുത്തു

ഒ

ജോസിനെയും യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനെയും എം